സത്യപ്രതിജ്ഞ രണ്ടാം ദിവസമായും ഇന്നും തുടർന്നു സഭ ഇന്നത്തേയ്ക്ക് പിരിഞ്ഞു

മിനിമം വിദ്യാഭ്യാസ ്യോഗൃത കേന്ദ്രം എടുത്തു നീക്കി

രൂപവത്ക്കരിക്കണ്മെന്ന വിഷയത്തിൽ അടിയന്തിര പ്രമേയ ചർച്ച തളളി പ്രതിപക്ഷം നിയമസഭയിൽ നിന്നിറങ്ങിപ്പോയി

നിന്നും വൈദ്യുതി വാങ്ങുന്നതിന് കെ എസ്

ബി സ്വകാര്യ കമ്പനിയുമായി ധാരണയായി

അവാർഡുകൾ പ്രഖ്യാപിച്ചു സത്യപ്രതിജ്ഞ പതിനേഴാം ലോക്സഭയുടെ ആദ്യ സമ്മേളനത്തിന്റെ രണ്ടാം ദിവസമായ ഇന്നും പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട ലോക്സഭാംഗങ്ങളുടെ സത്യപ്രതിജ്ഞ തുടർന്നു പ്രോട്ടം സ്പീക്കർ വീരേന്ദ്രകുമാർ അംഗങ്ങൾക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു ബിജെപിയിലെ രാജ്യവർദ്ദൻ റാത്തോഡ് സണ്ണി ഡിയോൾ കോൺഗ്രസിലെ മനീഷ് തിവാരി കാർത്തി ചിദംബരം ഡിഎംകെ നേതാക്കളായ എ രാജ കനിമൊഴി എന്നിവർ ഉൾപ്പെടെയുള്ള പ്രമുഖർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തു ഇംഗ്ളീഷിലും ഹിന്ദിയിലും പ്രാദേശിക ഭാഷകളിലുമാണ് അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്തത് സത്യപ്രതിജ്ഞ ചടങ്ങ് പൂർത്തിയാക്കി ലോക്സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു

യുപിഎ ൃ ്അധ്യ്ക്ഷ സോണിയ ഗാന്ധിയുടെ വസതിയിൽ ചേർന്ന യോഗ്ത്തിലാണ് ചൌധരിയെ ലോക്സഭ കക്ഷി നേതാവായി തെരഞ്ഞെടുത്ത്ത്

കെ ആന്റണി ഗുലാം നബി ആസാദ് ആനന്ദ് ശർമ്മ അടക്ക്മുള്ള് മുതിർന്ന നേതാക്കൾ യോഗത്തിൽ പങ്കെടുത്തു രാഹുൽഗാ്ന്ധി ലോക്സഭ കക്ഷി നേതൃസ്ഥാനം ഏറ്റെടുക്കാൻ വിസമ്മതിച്ചതിനെ തുടർന്നാണ് കോൺഗ്രസ് പകരെക്കാരനെ കണ്ടെത്തിയത്

ഗ്രാമപ്രദേശങ്ങളിൽ ഔപചാരിക വിദ്യാഭ്യാസം ലഭിക്കാത്ത യുവാക്കൾക്ക് തൊഴിൽ സാധ്യത ഉറപ്പ് വരുത്തുന്നതിനു വേണ്ടിയാണ് കേന്ദ്ര നടപടി

തിരുവനന്തപുരത്തും കൊച്ചിയിലും പോലീസ് ഡയറക്ട്രേറ്റ് ്രൂപീകരിക്കാനുള്ള തീരുമാനം എടുത്തത് മുൻ യു ഡി എഫ് ഗവൺമെന്റിന്റെ കാലത്താണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ഇത് യു ഡി

ഇപ്പോഴത്തെ ഗവൺമെന്റ് പുതുതായി ഒരു തീരുമാനവും എടുത്തിട്ടില്ല ഇതേക്കുറിച്ച് വ്ലീണ്ടും ചർച്ച നടത്തുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു

സുധാകരൻ കൊച്ചി പാലാരിവട്ടം പാലത്തിന്റെ നിർമാണ ക്രമക്കേട് സംബന്ധിച്ച് അന്വേഷണം നടന്നുവരികയാണെന്നും കുറ്റക്കാർക്കെതിരെ കർശന നടപടി എടുക്കുമെന്നും മന്ത്രി ജി

ഈ ഗവൺമെന്റിന്റെ കാലത്തു തന്നെ അറ്റകുറ്റപ്പണി പൂർത്തിയാക്കി പാലം സഞ്ചാര യോഗ്യമാക്കുമെന്നും മന്ത്രി ചോദ്യോത്തര വേളയിൽ പറഞ്ഞു നിയമസഭ റോഡ് പാഴായ പ്താസ്റ്റിക് ഉപയോഗിച്ചുള്ള റോഡുനിർമ്മാണം പൊതുമരാമത്ത് റോഡുകളിലേക്കും വ്യാപിപ്പിക്കുമെന്ന് മന്ത്രി ജി

പ്ലാസ്റ്റിക് ഉപയോഗിച്ചുള്ള റോഡുകൾ കൂടുതൽ ഈടുള്ളവയാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് റോഡുനിർമ്മാണത്തിന് പുതിയ ജർമ്മൻ സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തുമെന്നും മന്ത്രി ചോദ്യങ്ങൾക്കുള്ള മറുപടിയിൽ പറഞ്ഞു കടകംപള്ളി സുരേന്ദ്രൻ ചരിത്ര പ്രാധാന്യമുള്ള നെടിയിരുപ്പ് സ്വരൂപം ടൂറിസം പദ്ധതി സംസ്ഥാന ഗവൺമെന്റിന്റെ പരിഗണനയിലാണെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ നിയമസഭയിൽ പറഞ്ഞു

നിയമസഭയിൽ ഇന്ന് കൂടുതൽ നിയമസഭാ വാർത്തകൾ പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നിയമസഭയിൽ ഇന്ന് എന്ന് പരിപാടിയിൽ കേൾക്കാം

ഇതു സംബന്ധിച്ച് കെ എസ് ഇ ബിയും സ്വകാര്യ കമ്പനിയും ധാരണാപത്രത്തിൽ ഒപ്പു വച്ചു കൂടുതൽ വിവരങ്ങളുമായി ശ്രീലത

മണിയുടെ സാന്നിധ്യത്തിൽ തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിൽ പദ്ധതിയുടെ കരാറുകാരായ ജി ജെ എക്കോപവർ പ്രൈവറ്റ് ലിമിറ്റഡുമായാണ് കെ എസ് ഇ

ഖരമാലിനൃപദ്ധതികളിൽ നിന്നും വൈദ്യുതി വാങ്ങുന്നതിനായി വൈദ്യുതി ബോർഡ് ഏർപ്പെടുന്ന ആദ്യ കരാറും സംസ്ഥാനത്തെ ആദ്യപദ്ധതിയുമാണിത്

എസ് ഇ

വൈദ്യുതി ബോർഡ് ഇപ്പോൾ വാങ്ങുന്ന വൈദ്യുതിയുടെ വിലയേക്കാൾ നിരക്ക് കൂടുതലാണെങ്കിലും ഇതിന്റെ സാമ്പത്തിക ഭാരം ഉപഭോക്താക്കൾക്കു വഹിക്കേണ്ടി വരില്ലു കരാറനുസരിച്ച് കൊച്ചി നഗരസഭ ദിനംപ്രതി നൽകുന്ന കൃഷ്ണ ടൺ ഖരമാലിനൃത്തിൽനിന്നും പ്രതിവർഷ്ടം ൂർ ദ്രശക്ഷം യൂണിറ്റ് വൈദ്യുതി പദ്ധതിയിൽ നിന്ന് ഉത്പാദിപ്പിക്കാന്മാണ് ലക്ഷ്യമിടുന്നത്

ഖരമാലിനൃത്തിലെ സുഗമമായി ക്ത്തുന്ന ഘടകങ്ങളെ വേർതിരിച്ച് അവയെ വാതകമാക്കി മാറ്റി സ്റ്റീപ്രടർബൈൻ ജനറേറ്റർ ഉപയോഗിച്ചാണ് വൈദ്യുതി ഉത്പാദിപ്പിക്കുന്നത് ന്യൂസ്ഡെസ്ക് ആകാശവാണി

വ്യവസായ സ്ഥാപനങ്ങളിൽ ആലപ്പുഴയിലെ വിൽട്ടൺ വീവേഴ്സിനും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ് തിരുവനന്തപുരം ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജും പൊതു സ്ഥാപനങ്ങളിൽ തിരുവനന്തപുരം ടെക്നോപാർക്കിനുമാണ് ഒന്നാം സ്ഥാനം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ കോട്ടയം ജില്ലയിലെ കാണക്കാരി പഞ്ചായത്ത് ഒന്നാമതായി ഗവേഷണ സ്ഥാപനങ്ങളിൽ എറണാകുളത്തെ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജിയും അക്ഷയ ഊർജ രംഗത്തെ വ്യവസായ സ്ഥാപനങ്ങളിൽ തൃശൂരിലെ സോൾജൻ എനർജിയും വ്യക്തികളിൽ കോഴിക്കോട് എൻ ഐ

കുമാരവേലും ഒന്നാം സ്ഥാനത്തെത്തി റിയാലിറ്റി ഷോ നൃത്താധിഷ്ഠിത റിയാലിറ്റി ഷോകളിൽ കുട്ടികൾക്ക് പ്രായത്തിന് അനുസൃതമായ പ്രാതിനിധൃം നൽകണമെന്ന് കേന്ദ്രഗവൺമെന്റ് സ്വകാര്യ ടെലിവിഷൻ ചാനലുകളോട് ആവശ്യപ്പെട്ടു ചലച്ചിത്രങ്ങളിലും മറ്റും മുതിർന്നവർ അവതരിപ്പിക്കുന്ന നൃത്തരംഗങ്ങൾ കുട്ടികളെക്കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് അവരിൽ മനോവൈകലൃങ്ങൾക്ക് ഇടയാക്കുമെന്ന് വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയം പുറപ്പെടുവിച്ച വിജ്ഞാപനത്തിൽ പറയുന്നു

ബേപ്പൂർ ചാലിയം ചോമ്പാല എന്നീ ഹാർബറുകൾ കേന്ദ്രീകരിച്ചും സെൻട്രൽ മാർക്കറ്റിലുമായിരുന്നു പരിശോധന വാഗമൺ ഇൻട്രോ ഇടുക്കി വാഗമണ്ണിലെത്തുന്ന വിനോദസഞ്ചാരികൾക്കായി ടൂറിസം വകുപ്പ് കൂടുതൽ സൌകര്യങ്ങൾ ഏർപ്പെടുത്തി

അറസ്റ്റ് വയനാട് പുൽപള്ളിയിൽ പ്രായപൂർത്തിയാകാത്ത ആദിവാസിപെൺകുട്ടിയെ തട്ടികൊണ്ടു പോയി പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിൽ മധ്യവയസ്കൻ അറസ്റ്റിൽ സീതാ മൌണ്ട് ്ചവറുപുഴയിൽ സി ഡി ഷാജി യെയാണ് പെൺകുട്ടിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്തത് വായനപക്ഷാചരണം സ്റ്റേറ്റ് ലൈബ്രറി കൌൺസിലിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന വായനപക്ഷാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ നിർവ്വഹിക്കും ക്രുഉച്ചയ്ക്ക് തിരുവനന്തപുരം എസ്